സുരേന്ദ്രൻ

എൻ കൃഷ്ണൻ അന്തരിച്ചു

രോഗമുക്തിയുടെ നിരക്കും കാര്യമായി വർദ്ധിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു വിശദാംശങ്ങളുമായി ജഷിത കുമാരി വോയ്സ് രംഭ മാസ്ക് ധരിക്കുന്നതിന്റെ പ്രാധാന്യം കൂടുതൽ ഗൌരവത്തോടെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പുതിയ ക്യാമ്പയിൻ ആരംഭിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു മാസ്ക് ധരിക്കൂ കുടുംബത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യമുയർത്തുന്ന ക്യാമ്പയിൻ ആധുനിക ആശയവിനിമയ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളിലേക്കെത്തിക്കും

അതിനനുസൃതമായി ടെസ്റ്റുകളുടെ എണ്ണം വർധിപ്പിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

രംഭ വാക്സിൻ കണ്ടെത്തുന്നതുവരെ കോവിഡ് പ്രതിരോധത്തിൽ നിതാന്ത ജാഗ്രത അനിവാര്യമാണെന്ന് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ പറഞ്ഞു മുൻകരുതൽ കൂടുതൽ കർശനമായി തുടരാൻ സമൂഹം തയാറാവണമെന്നും അതുവഴി നമുക്ക് മഹാമാരിയെ അതിജീവിക്കാനാകുമെന്നും അദ്ദേഹം ആകാശവാണിയോട് പറഞ്ഞു

എനേബിളിങ് കോഴിക്കോട് പദ്ധതി പ്രഖ്യാപനം വീഡിയോ കോൺഫറൻസ് വഴി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി രും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അന്വേഷണം നടത്തുന്ന കേന്ദ്ര ഏജൻസികൾ പരിധി ലംഘിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി അന്വേഷണം നിയമപരമായ വഴികളിലൂടെ സഞ്ചരിക്കുമെന്ന ന്യായയുക്തമായ പ്രതീക്ഷയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുമ്പോൾ സംസ്ഥാനത്തിന് ഉണ്ടായിരുന്നതെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

രംഭ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തന്നിലേക്ക് എത്തുമെന്നുറപ്പായപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് ഹാലിളകിയിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു

രും ദേശീയ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ശരിയായ ദിശയിലായതോടെ മുഖ്യമന്ത്രിയുടെ തനിനിറം പുറത്തായെന്നും ബി ജെ പി സംസ്ഥാന അദ്ധ്യക്ഷൻ കെ

രുര നിരത്തുകളിൽ സ്ഥാപിച്ച ക്യാമറയിൽ പതിയുന്ന ദൃശ്യങ്ങൾ പ്രകാരം അമിത വേഗത്തിന് പിഴ ഈടാക്കുന്നത് ഹൈക്കോടതി തടഞ്ഞു

റിപ്പബ്ലിക് പാർട്ടി സ്ഥാനാർത്ഥിയും നിലവിലെ പ്രസിഡണ്ടുമായ ഡൊണാൾഡ് ട്രംപും ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി ജോ ബൈഡനും തമ്മിലെ പോരാട്ടം ചരിത്രത്തിലെ വാശിയേറിയ മത്സരമായി വിലയിരുത്തപ്പെടുന്നു

രുര ബീഹാറിൽ രണ്ടാംഘട്ട വോട്ടെടുപ്പ് ഇന്ന്

രും തദ്ദേശ തിരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ സംസ്ഥാന ജീവനക്കാരുടെയും അദ്ധ്യാപകരുടെയും സ്ഥലമാറ്റത്തിന് വിലക്ക് ഏർപ്പെടുത്തിയതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വി

എം പി അരവിന്ദാക്ഷൻ പക്ഷത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ടെലിവിഷൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മരവിപ്പിച്ചു രംഭ പ്രശസ്ത വയലിനിസ്റ്റ് പ്രൊഫ

വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെത്തുടർന്ന് ഇന്നലെ വൈകിട്ട് ചെന്നൈയിലെ വസതിയിലായിരുന്നു അന്ത്യം വയലിൻ ത്രയങ്ങളിൽ ലാൽഗുഡി ജയരാമനും എം എസ് ഗോപാലകൃഷ്ണനുമൊപ്പം അറിയപ്പെടുന്ന തൃപ്പൂണിത്തുറ നാരായണയ്യർ കൃഷ്ണൻ എന്ന ടി

എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപ്പിറ്റൽസ് പ്ലേ ഓഫ് ഉറപ്പാക്കി അബൂദാബിയിൽ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ ആറു വിക്കറ്റിന് തോൽപ്പിച്ചാണ് പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനക്കാരായി ഡൽഹി പ്ലേ ഓഫിൽ കടന്നത് പരാജയപ്പെട്ടെങ്കിലും റൺറേറ്റിന്റെ ബലത്തിൽ ബാംഗ്ലൂരും പ്ലേ ഓഫ് ഉറപ്പാക്കി

ജയിക്കാനായാൽ ഹൈദരാബാദ് പ്പേ ഓഫ് ഉറപ്പാക്കും ഹൈദരാബാദ് പരാജയപ്പെട്ടാൽ കൊൽക്കത്തയ്ക്ക് പ്പേ ഓഫിൽ പ്രവേശിക്കാം

ഒന്നാംഘട്ടത്തിൽ ഇന്ത്യൻ നേവിക്കു പുറമെ അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ നാവിക സേനകളും അഭ്യാസത്തിൽ പങ്കെടുക്കും

അഭ്യാസത്തിന്റെ രണ്ടാംഘട്ടം ഈ മാസം മധ്യത്തോടെ അറബിക്കടലിൽ നടക്കും രും മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്യുന്ന ബിനീഷ് കൊടിയേരിയുടെ കസ്റ്റഡികാലാവധി ബംഗളൂരു സെഷൻസ് കോടതി ശനിയാഴ്ച വരെ നീട്ടി ബിനീഷ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കാനായില്ലെന്നും ഇ ഡി അറിയിച്ചതിനെ തുടർന്നാണ് കസ്റ്റഡി അഞ്ചുദിവസത്തേക്ക് കൂടി നീട്ടിയത് രും സംസ്ഥാന ഗവൺമെന്റ് നേരിട്ടു നടത്തുന്ന സപ്ലൈകോയുടെ ആദ്യ പൊതുവിതരണ കേന്ദ്രം ഇന്ന് ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരം പുളിമൂട് സ്റ്റാച്യു സൂപ്പർമാർക്കറ്റിനോട് ചേർന്ന് തുറക്കും മന്ത്രി പി തിലോത്തമൻ ഉദ്ഘാടനം ചെയ്യും

രുര തിരുവനന്തപുരം അനന്തവിലാസം കൊട്ടാരത്തിൽ കേരള ചരിത്രവും പൈതൃകവും വിളിച്ചോതുന്ന സാംസ്കാരിക സൌധം മന്ത്രി എ

ലളിതകലാ അക്കാദമിയുടെ ആർട്ട് ഗ്യാലറിയും വില്പന കൌണ്ടറും കേരള ചരിത്രവും പൈതൃകവും പ്രദർശിപ്പിക്കുന്ന ഫോട്ടോ ഗ്യാലറി ആറൻമുള വാസ്തുവിദ്യാ ഗുരുകുലത്തിന്റെ ചുമർ ചിത്ര ഗ്യാലറിയും ചേർത്ത് ഒരു ചിത്രമാളികയും ഉൾപ്പെടുന്നതാണ് സാംസ്കാരിക സൌധം രും നെയ്യാർ സഫാരി പാർക്കിൽ മൃഗങ്ങളെ പാർപ്പിക്കുന്നതിനും ചികിത്സിക്കുന്നതിനുമായി നിർമ്മിച്ചിരിക്കുന്ന കൂടുകൾ നവീകരിക്കുമെന്നും പുതിയ ചികിത്സാകൂട് നിർമ്മിക്കുന്നത് പരിഗണിക്കുമെന്നും മന്ത്രി കെ

വയനാട്ടിൽ നിന്നും സഫാരി പാർക്കിൽ എത്തിച്ച പെൺകടുവ കൂട്ടിൽ നിന്നും പുറത്തുചാടിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം